ക്വാറന്റൈൻ ഏഴ് ദിവസമായി ചുരുക്കിയതിനാൽ അധികമായി ഇൌടാക്കിയ തുക ഹോട്ടലുകൾ മടക്കിനൽകണമെന്ന് കേന്ദ്രസർക്കാർ

കോയമ്പത്തൂരിലെ സുളൂരിൽ നിലവിൽ വന്നു

ലോക്ക്ഡൌൺ കാ്ലയളവിൽ കോവിഡിനെതിരെ ആരോഗ്യ അടിസ്ഥാന പ്സ്ത്ക്ര്യം വർദ്ധിപ്പിക്കാനും വാക്സിൻ വികസനപ്രവർത്തനങ്ങൾ ് നടത്താനും കഴിഞ്ഞു

കോവിഡിനെ നേരിടാൻ ലോക്ക്ഡൌൺ പരിഹാരമല്ലെന്നാണ് രാഹുൽഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ കോൺഗ്രസ് ഭരണത്തിലുളള രാജസ്ഥാൻ പഞ്ചാബ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ നടപ്പിലാക്കിയത് ശ്രീ രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി കുടിയേറ്റ തൊഴിലാളികളെ നാടുകളിലേക്ക് മടക്കിയെത്തിക്കുന്ന ശ്രമിക് ട്രെയിനുകളിൽ തൊഴിലാളികളിൽ നിന്ന് യാത്രാക്കൂലി ഈടാക്കുന്നുവെന്ന് രാഹുൽ പറഞ്ഞതും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞത്

വിദ്യേൃത്തു നിന്ന് മടങ്ങിയെത്തുന്നവർ ഏഴു ദിവസം ഹോട്ടൽ ക്വാറന്റൈനും ബാക്കി ഏഴ് ദിവസം വീട്ടിൽ ഐസൊലേഷനും വിധേയമായാൽ മതിയെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതുക്കിയ മാർഗ്ഗ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം മുൻകൂറായി ദിവസത്തേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തവർക്കാണ് തുക തിരികെ നല്കുന്നത് ചില ഹോട്ടലുകൾ അധികമുള്ള ഏഴ് ദിവസത്തെ തുക തിരികെ നൽകാൻ വിസമ്മതിക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഈ നിർദ്ദേശം നല്കിയത് ഏഴ് ദിവസത്തെ തുക മാത്രമേ ഹോട്ടലുകൾ ഈടാക്കാവൂ എന്നും ബാക്കി തുക തിരികെ നൽകണമെന്നും ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

പൊതുയിടങ്ങളിൽ തുപ്പുങ്ങുത് കോവിഡ് പടരാൻ ഇടയാക്കുമെന്നും അതിനാൽ ആങ്ങനെ ചെയ്യരുതെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചുൾ പൊതുയിടങ്ങളിൽ തുപ്പുന്നത് ശിക്ഷാർഹമാണ് ് പ്പിച്ചു ്ജനങ്ങൾ മുഖാവരണം ധരിക്കണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എയർ ചീഫ് മാർഷൽ ആർ കെ

ഇന്ത്യയുടെ ലഘുയുദ്ധവിമാനം തേജസുമായി പ്രവർത്തിക്കുന്ന വ്യോമസേനയുടെ രണ്ടാമത്തെ സ്ക്വാഡ്രൺ ആണിത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘുപോർ വിമാനമാണ് തേജസ്

ഒരു റിപ്പോർട്ട്

ചെറുക്കുന്നതിന് ആരോഗ്യപ്രവർത്തകർ ധരിക്കുന്ന വ്യക്തി സുരക്ഷാ കവചം മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഭൂവനേശ്വർ ചെന്നൈ ലക്നൌ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ സൌകര്യങ്ങൾ സജ്ജമാകും ലോകാരോഗ്യ സംഘടനയുടെ മാർഗ്ഗ നിർദ്ദേശപ്രകാരമായിരിക്കും പരിശോധന നടക്കുക സ്ഥാപനത്തിന്റെ മുറുതൽ ജയ്പൂർ മധുര ലക്നൌ കേന്ദ്രങ്ങളിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ മുഖ കവചം വികസിപ്പിച്ചു കഴിഞ്ഞു ഭ്ക്ഷ്യനാനൃങ്ങൾ പാക്ക് ചെയ്യുന്നത് പരിശോധിക്കുന്നതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്

ഡൽഹിയിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടായ ദിവസമാണിത്

നിലവിലെ പരിശോധനാ നടപടിക്രമങ്ങൾ ഞായറാഴ്ചവരെ തുടരുമെന്നും ശ്രീ പ്രമോദ് സാവന്ത് അറിയിച്ചു

പശ്ചിമ ബംഗാളിൽ വിമാനസർവ്വീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും

ധാക്കയിലെ ഹസ്രത് ്ഷാജലാൽ വിമാനത്താവളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള വിമാനത്തിലാണ് ഇവരെ മടക്കിയെത്തിച്ചത്

അത്തരം തീരുമാനം എടുത്തിട്ടില്ലെന്നും സ്കുളുകൾ തുറക്കുന്നതിനുള്ള വിലക്ക് രാജ്യത്തൊട്ടാകെ തുടരുകയാണെന്നും മന്ത്രാലയം വൃക്തമാക്കി

ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകൾ രംഗത്തുണ്ട്